പത്രികാസമർപ്പണം നാളെ മുതൽ തെരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്കാനം

സ്ഥാനാർത്ഥി ചിത്രം വൃക്ത്മാകുന്നു മുഖ്യമന്ത്രി മാതൃക്കൂർ പ്പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി ന് പ്രതിപക്ഷ നേതാവിന്റെ പരാതി

ഭക്തിയുടെ നിറവിൽ ഇന്ന് മഹാ ശിവരാത്രി

ചരിത്ര പ്രസിദ്ധമായ ശിവരാത്രി ഉത്സവത്തിന് ആലുവ ഒരുങ്ങി

പത്രികാ സമർപ്പണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളും രണ്ടെണ്ണം മാത്രമേ പാടുള്ളൂ ഓൺലൈനായി പത്രിക നൽകുന്നവർ ഡൌൺലോഡ് ചെയ്ത് പകർപ്പ് വരണാധികാരിക്ക് നൽകണം കെട്ടിവെയ്ക്കേണ്ട തുകയും ഓൺലൈനായി അടയ്ക്കാം

എമ്മും അവസാനഘട്ട ചർച്ചകൾ ഊർജിിയുമാക്കി കോൺഗ്രസും ബി ജെ പിയും കളം നിറഞ്ഞൂത്തോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലായി

മണ്ഡലങ്ങളിൽ വോട്ടർമാരെ നേരിൽകണ്ട് സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർഥന ആരംഭിച്ചു അതേസമയം യു ഡി എഫും എൻ

എയും അന്തിമഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർഥികളെ ഉടൻ പ്രഖ്യാപിക്കാനുള്ള തിരക്കിലാണ്

നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിയും വിധം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടെ ആദ്യ പട്ടിക പുറത്തിറക്കുമെന്നാണ് സൂചന അതേസമയം ശക്തമായ ത്രികോണ മത്സരം നേരിടുന്ന നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും പാർട്ടിലെ മുതിർന്ന നേതാക്കളെ സ്ഥാനാർഥികളാക്കണമെന്ന് ഹൈക്കമാൻഡിന്റെ സ്ഥാനാർഥി നിർണയ യോഗത്തിൽ ആവശ്യമുയർന്നെങ്കിലും ഇക്കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല

ഡി എഫിന്റെ ഭാഗമായ ആർ

സ്ഥാനാർഥി നിർണയവുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ നിർണായക യോഗം ഇന്ന് പാണക്കാട് ചേരുകയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് അവസാന ഘട്ട ചർച്ചകൾ ബിജെപിയിലും പുരോഗമിക്കുകയാണ്

എ ഘടക കക്ഷിയായ ബി

ഇന്ന് ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ്ട്രേ്ഷം ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപ്പന്ം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ

സ്ഥാനാർഥി പട്ടിക പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര യോഗം ചേരുന്നത്

രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തിറക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം

ഡി എഫ് അനുവദിച്ച സീറ്റുകളിൽ പാലായിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും കാഞ്ഞിരപ്പള്ളിയിലും ഇടുക്കിയിലും സിറ്റിംഗ് എം

എ മാരായ എൻ

നേരത്തെ തർക്കമുണ്ടായിരുന്ന കടുത്തുരുത്തിയിൽ സ്റ്റീഫൻ ജോർജിനെയും റാന്നിയിൽ പ്രമോദ് നാരായണനെയും നിശ്ചയിച്ചു എന്നാൽ പിറവത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർട്ടിയിൽ തർക്കമുയർന്നു

എം അംഗമായ ഡോ സിന്ധുമോൾ ജേക്കബിനെ പിറവം സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് പിറവം നഗരസഭാ കൌൺസിലർ ജിൽസ് പെരിയപുറം കേരളാ കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജിവച്ചു അതേസമയം സിന്ധു മോൾ ജേക്കബിനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതായി സി

എം ഉഴവൂർ ലോക്കൽ കമ്മിറ്റി അറിയിച്ചു

തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന ശേഷം ഈ മാസം നാല് ആറ് തീയതികളിൽ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പുതിയ പരിപാടികളും നയങ്ങളും പ്രഖ്യാപിച്ചതായാണ് പരാതി സർക്കാരിന്റെ പതിവ് പ്രഖ്യാപനങ്ങളായാലും ചീഫ് സെക്രട്ടറി വഴി മാത്രമേ നടത്താവൂ എന്ന് നിർദ്ദേശം നല്കണമെന്നും അദ്ദേഹം അവശ്യപ്പെട്ടു

ആകാശവാണി ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

വെർചൽ ക്യൂ സംവിധാനത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ

എന്നാൽ ശിവരാത്രി നാളിൽ രാത്രിയിൽ മണപ്പുറത്ത് ഉറക്കമൊഴിക്കാൻ ആരെയും അനുവദിക്കില്ല ശബരിമല ശബരിമലയിൽ മീനമാസ പൂജ ഉത്സവം എന്നിവയ്ക്ക് തീർത്ഥാടകരുടെ വെർചൽ ക്യൂ ബുക്കിംഗ് തുടങ്ങി

ടി

സി ആർ പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്കാണ് അനുമതി ലഭിക്കുക

കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് വോയിസ്

എസ് എൽ സി പരീക്ഷാകേന്ദ്ര മാറ്റത്തിന് ഓൺലൈനായി നാളെവരെ അപേക്ഷ സമർപ്പിക്കാം

പോളിംഗ് ഉദ്യോഗസ്ഥർ ബൂത്തുകളിൽ എത്തുന്നത് മുതലുള്ള നടപടികൾ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കാണാൻ കഴിയും വിധമുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്

ഡിഎഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് എസിലെ രാമച്ചിന്ദ്രൻ ് കടന്നപ്പള്ളിയെയും കൂത്തുപറമ്പിൽ എൽ

എഫ് സ്ഥാനാർഥിയാവുക